എൽ

അണക്കെട്ട് സന്ദർശിക്കും

ഇന്ത്യയ്ക്കെതിരായ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിന് എട്ട് വിക്കറ്റ് ജയം

നടപ്പ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ പട്ടിക ഗവൺമെന്റ് പുറത്തുവിട്ടു

കൂടാതെ പാർലമെന്റ് സമ്മേളിക്ട്ടാതിരുന്ന കാലത്തെ ഓർഡിനൻസുകൾക്ക് നിയമസാധുതൃക്ടിൽക്കുന്ന ബില്ലവതരണത്തിനും ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് കൽകുന്നത് ഇതിൽ സാമ്പത്തിക കുറ്റകൃഷ്ണൂർ തടയൽ ഓർഡിനൻസ് ക്രിമിനൽ നിയമഭേദഗതി ഓര്യ്യിന്റ്സ് വാണിജ്യ കോടതി ഹൈക്കോടതികളുടെ വാണ്ണിജ്യ അപ്പലേറ്റ് വ്യവഹാര വിഭാഗം ഭേദഗതി കേന്ദ്ര ഹോമിയോപ്പതി കൌൺസിൽ ഓർഡിനൻസ് ദേശീയ കായിക സർവ്വകലാശാല ഓർഡിനൻസ് പാപ്പരത്ത നിയമ ഭേദഗതി ഓർഡിനൻസ് എന്നിവ ഉൾപ്പെടുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും സമ്മേളനത്തെ തുടർന്ന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഇന്നലെ നടന്നത് സമ്മേളനകാലത്ത് സഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങെ സംബന്ധിച്ച് പ്രതിപക്ഷം തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്ന് ഗവൺമെന്റും അറിയിച്ചു ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് ഇന്നലെ വൈകുന്നേരം ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചിരുന്നു ഫലപ്രദമായ ഒരു സമ്മേളനകാലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേയും സഹകരണം അഭ്യർഥിച്ചു ദേശീയ താൽപര്യം മുൻനിർത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ഗവൺമെന്റ് ചെവിക്കൊള്ളുമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു യോഗശേഷം മാധ്യമങ്ങളെ കണ്ട പാർലമെന്ററി കാര്യ മന്ത്രി അനന്ത്കുമാർ എല്ലാ പാർട്ടികളും സഹകരണം വാഗ്ദാനം ചെയ്തതായി അറിയിച്ചു ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജനും രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡുവും പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു പതിനെട്ട് ദിവസം സമ്മേളിക്കുന്ന വർഷകാല സമ്മേളനം അടുത്തമാസം പത്തിന് സമാപിക്കും

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ വോയിസ് പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നേതാക്കൾ സഹകരണം വാഗ്ദാനം ചെയ്തതായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പാർട്ടി നേതാക്കളുടെ യോഗത്തിനുശേഷം സ്പീക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു സമ്മേളനകാലത്ത് സഭയുടെ മേശപ്പുറത്ത് വരുന്ന ബില്ലിൻമേൽ ചർച്ച നടക്കും ഇത്തവണ ലോക്സഭാ എം പി മാർക്ക് പുതിയ വൈ ഫൈ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഇതുവഴി അംഗങ്ങൾക്ക് വിവരശേഖരണത്തിനായി പാർലമെന്റ് ലൈബ്രറി ഓഫീസ് മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും സ്പീക്കർ വ്യക്തമാക്കി

എൽ എ മാരുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി അധികാര സ്ഥാനങ്ങൾ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതിനെ തുടർന്ന് എം

എ മാരെ അയോഗ്യരാക്കിയു സ്പുംഭവത്തിലാണ് നടപടി പരാതിക്കാരനായ പ്രശാന്ത് പട്ടേലിന്റെ വിസ്തരിക്കാനുള്ള അർഹത എം എൽ

എൽ

ഇതിൽ ഒരാൾ പിന്നീട് രാജിവച്ചിരുന്നു

കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി വീണ്ടും എ

ഉമ്മൻചാണ്ടി കെ

മുതിർന്ന നേതാക്കളായ സർവ്വശ്രീ ദിഗ്വിജയ്സിംഗ് ജനാർദ്ദൻ ത്രിവേദി കമൽനാഥ് സുശീൽകുമാർ ഷിൻഡേ മോഹൻപ്രകാശ് സി

ജോഷി എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ പോഷക സംഘടനകളായ ഐ

സി സേവാദൾ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എൻ

പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയശേഷം പ്രവർത്തക സമിതിയിൽ ശ്രീ രാഹുൽഗാന്ധി നടത്തുന്ന ആദ്യ അഴിച്ചുപണിയാണ് ഇത്ത്പ്രണ്ട്ത്തേത്

നിർണായകമായ വാദം ഇന്ന് തുടരും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

ഇതിലേക്ക് മൂന്നര ലക്ഷം ടൺ പാൽപ്പൊടി ഗോഡൌണുകളിൽ സംഭരിച്ചു കഴിഞ്ഞതായി അദ്ദേഹം അറിയിച്ചു കൂടാതെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടിയിലൂടെയും അംഗൻവാടികൾ മുഖേനയും പാൽപ്പൊടി വിതരണത്തിന് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ തമ്മിൽ ചർച്ചുകൾ നടന്നുവരുകയാണെന്നും ശ്രീ ഗഡ്കരി സൂചിപ്പിച്ചു

ഗവർണർ എൻ

ജെ പി യുടെ നേതൃത്വത്തിൽ എൻ

ന്യൂസ് ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് സംവാദത്തിന്റെ തത്സമയ സംപ്രേക്ഷണം വീക്ഷിക്കാനും സൌകര്യമുണ്ട്

ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണിത് ഗിർ സോംനാഥ് ജില്ലയിൽ മുഖ്യമന്ത്രി വിജയ് റുപാനിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറ്റിയിച്ചത് കനത്ത മഴയെത്തുടർന്ന് വൽസാദ് ജൂന്മാഡ് ജില്ലകളിൽ ദുരിതാശ്ചാസ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് തടസമുണ്ടാകാതിരിക്കാനാണ് പ്രധാനമന്ത്രി സന്ദർശനം മാണ്ണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി തുടർന്നുണ്ട്ടിയും സ്ഥിതിഗതികൾ വിലയിരുത്താൻ മഴയെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന ഗവൺമെന്റുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ നൂറുകണക്കിന് കുടുംബങ്ങളെ രക്ഷിക്കാൻ ദേശീയ ദുരന്ത നിവാരണ സംസ്ഥാനത്ത് ഇന്നുവരെ കനത്ത മഴ സേന കോട്ടയത്തെത്തി തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്

ജോ റൂട്ടിന്റെ സെഞ്ചുറി പ്രകടനവും നായകൻ ഇയാൻ മോർഗന്റെ തകർപ്പൻ ബാറ്റിംഗുമാണ് ഇംഗ്ലണ്ടിന് ജയം അനായാസമാക്കിയത്